ചർച്ചകൾ ഊർജ്ജിതം

ജെ

യോഗത്തിന് ഗുജറാത്തിലെ ക്രെപ്പാ്ദിയയിൽ ഇന്ന് തുടക്കം

ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് നാല് വിക്കറ്റ് നഷ്ടമായി

ശ്രീകാന്ത് സൌരഭ് വർമ പി

സിന്ധു എന്നിവർ രണ്ടാം റൌണ്ടിൽ

കൂടുതൽ വിവരങ്ങളുമായി സൈമ

സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ച്കൾ ഈ മാസം പത്തോടെ ആരംഭിക്കും

ജെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി

ദേശീയ അ്ധ്യക്ഷൻ ജെ

നദ്ദ മുതിർന്ന പാർട്ടി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് അന്തിമരൂപം നൽകുമെന്ന് കരുതുന്നു പശ്ചിമ ബംഗാളിലെ പാർട്ടി കേന്ദ്ര നിരീക്ഷകൻ കൈലാഷ് വിജയ വാർഗിയ യോഗത്തിൽ സംബന്ധിക്കും അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്നലെ ശ്രീ അമിത് ഷായെ സന്ദർശിച്ച് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏഴാം തീയതി തൃശൂരിൽ എത്തുന്ന കമ്മീഷണർ എട്ടാം തീയതി എറണാകുളത്ത് ജില്ലാ വരണാധികാരികൾ പോലീസ് മേധാവികൾ എന്നിവരുമായി ചർച്ച നടത്തും അടുത്ത ദിവസം കോട്ടയം എറണാകുളം ജില്ലകളിലെ വിവിധ ഇടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തും

തിരുവനന്തപുരത്ത് ്വരണാധികാരികളുട്ട പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹും

ബംഗ്സാദേശ് വിദേശകാര്യമന്ത്രി എ കെ അബ്ദുൾ മൊമെനുമായും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേയ്ഖ് ഹസീനയുമായും ശ്രീ

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനായി കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന പ്രധാനമന്ത്രിതല ഉച്ചകോടിയുടെ തുടർച്ചയായാണ് ഇന്ന് നടക്കുന്ന വിദേശമന്ത്രിമാരുടെ കൂടിക്കാഴ്ച്ചു

അഫ്ഗാനിസ്ഥാൻ അർമേനിയ ഇറാൻ ഖസക്കിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജൃങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുക്കുന്നു ചരക്കുഗതാഗതത്തിലുപരി ജീവകാരുണ്യ സഹായ വിതരണത്തിന്റെ കേന്ദ്രം കൂടിയാണ് ചബഹാർ തുറമുഖമെന്ന് വിദേശകാര്യ മന്ത്രി എസ്

മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സ്ഥാപിക്കാനുള്ള പ്രതിബദ്ധതയുടെ ഭാഗം കൂടിയാണ് തുറമുഖമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും രാജ്യരക്ഷാ മന്ത്രീ രാജ്നാഥ് സിംഗ് മൂന്ന് സേനകളിലെയും ഉയർന്ന കമാൻഡർമാട്ടെരു നൂട്ട്ളെ അഭിസംബോധന ചെയ്യും പുതിയ വ്യോമ പ്രതിരോധ കമ്റ്ൻഡിന്റെയും മാരിടൈം കമാൻഡിന്റെയും രൂപീകരണവും യോഗം ചർച്ച ചെയ്യുമെന്ന് കരുതുന്നു സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്താണ് പുതിയ കമാൻഡുകൾ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്

പാർശ്വഫില്ങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഗുജറാത്ത് സംസ്കാൻപ്പ്ആരോഗ്യ വകുപ്പ് അറിയിച്ചു

തിരുപ്പതി ഐ ഐ ടി യിലെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും

നാളെ ശ്രീ വെങ്കയ്യ നായിഡു തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും

എഫ് ജവാൻമാർ കൊല്ലപ്പെട്ടു ഒരു ജവാന് സാരമായ പരിക്കേറ്റു ദിവസത്തിനിടെ ഈ മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ നക്സൽ ആക്രമണമാണ് ഇത് സംസ്ഥാന പൊലീസും സി

പരിക്കേറ്റ ജവാന്മാരെ റാഞ്ചിയിലേക്ക് കൊണ്ടു പോയി കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല

യാങ്കൂണിലാണ് ഏറ്റവും ക്ടൂടുതൽ പേർ കൊല്ലപ്പെട്ടത് മ്യാൻമറിൽ പ്രതിസന്ധി രൂക്ഷമാണെന്നും സൈനിക ഭരണകൂടം ആഗോളതലത്തിൽ കടുത്ത നടപടികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും യു എൻ

സൈനിക ഉപമേധാവി സോ വിന്നുമായി യു എൻ

മ്യാൻമറിലെ സ്ഥിതി ഐക്യരാഷ്ട്ര രക്ഷാസമിതി നാളെ ചർച്ച ചെയ്യും സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും യു എസ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ യോഗത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധികൾ ഇരു വിഭാഗവും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉൌട്ടിയുറപ്പിക്കാൻ ഇന്ത്യ നിരന്തരം പരിശ്രമിക്കുന്നുണ്ടെന്ന് വൃക്തമാക്കി ദക്ഷിണ സുഡാനിലെ ജനങ്ങളുമായി ഇന്ത്യയ്ക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ടെന്ന് ഇന്ത്യയുടെ യു എൻ സ്ഥാനപതിയായ നാഗരാജ നായ്ഡു രക്ഷാ സമിതി യോഗത്തിൽ പറഞ്ഞു

ശ്രീകാന്ത് സൌരഭ് വർമ അജയ് ജയ്റാം എന്നിവർ രണ്ടാം റൌണ്ടിൽ കടന്നു

വനിതകളിൽ പി

സിന്ധുവിന് ആദ്യ മത്സരത്തിൽ മികച്ച വിജയം തുർക്കിയുടെ നെസ്ലിഹൻ യിഗിത്തിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സിന്ധു തോൽപ്പിച്ചത്

കോട്ടയം നഗരത്തിലെ സപ്ലൈകോ ഓപ്ട്ടീസിനു മുന്നിൽ നെൽ ചാക്കുകൾ കൂട്ടിയിട്ടാണ് സമരം നടത്തുന്നത്